ഘടകങ്ങളായ താങ്ങു വിലയും ഭക്ഷ്യ ധാന്യങ്ങളുടെ സംഭരണവും സംരക്ഷിക്കാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേന്ദ്ര മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ ഉദ്ഘാടനം ചെയ്തു

പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്തി പിണറായി വിജയൻ

ഐപിഎല്ലിൽ ടോസ് നേടിയ കൊൽക്കത്ത മുംബൈയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു

കോവിഡ് മഹാമാരി കാലത്തും ഭക്ഷ്യ വിത്രണ ശൃംഖല തകരാതെ കാത്തതിൽ രാജ്യത്തെ കർഷക്ർ വലിയ പങ്ക് വഹിച്ചതായി അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി കർഷകരെ ഭക്ഷ്യ വിപ്സവത്തിലേക്ക് ഉള്ള ഭരണകൂടത്തിന്റെ യാത്രിയിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായി വിശേഷിപ്പിച്ചു

ഒരു രൂപയുടെ സാനിറ്ററി പാഡുകൾ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ തുടങ്ങിയ നടപടികൾ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും സമഗ്ര വളർച്ചയ്ക്ക് വഴി തുറന്നു രാജ്യത്തെ ചെറുകിട കർഷകരുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് വലിയതോതിലുള്ള കർഷക ഉൽപാദ സംഘടനകളുടെ ശൃംഖലയ്ക്ക് രൂപം നൽകിയത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സമയത്തെ ഇടനിലക്കാരുടെ മോശം ഇടപെടലുകൾ ഒഴിവാക്കാൻ പുതിയ നിയമങ്ങൾ സഹായിക്കും

ശരിയ്ായ പിപണനവും സാങ്കേതിക വിദൃയുടെ ഉപയോഗവും കാർഷിക് മേഖലയുടെ വികസനത്തിന് സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

രോഗബാധയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

വിദ്യാഭ്യാസ മേഖലയിലെ പരസ്പര സഹകരണം ഇരു കൂട്ടർക്കും പ്രയോജനപ്രദമാവുമെന്ന് മന്ത്രി പറഞ്ഞു

രാജ്യത്ത് പലയിടത്തും ദളിതരും പിന്നാക്ക വിഭാഗങ്ങളും ഭീഷണിയും അക്രമവും നേരിടുമ്പോൾ കേരളത്തിൽ സർക്കാർ ഈ വിഭാഗങ്ങൾക്കായി സംരക്ഷണ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്ന പദ്ധതികളും നടപ്പാക്കുകയാണെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാമൂഹ്യ ഐക്യദാർഢ്യപക്ഷാചരണം സമാപനവും എസ്

സൂക്ഷ്മപരിശോധന നാളെ നടക്കും

എന്നാൽ ഇവിടെ ഒന്നേകാൽ ലക്ഷം കോളേജ് സീറ്റുകളേ നിലവിലുള്ളൂ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം നൽകാൻ കൂടുതൽ കോളേജുകൾ ആരംഭിക്കേണ്ടതുണ്ടെന്നും കെജ്രിവാൾ അഭിപ്രായപ്പെട്ടു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദർശനം സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു

മല കയറാൻ പ്രാപ്തരാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ദർശനത്തിനെത്തുന്നവർ കരുതണം

മാസ്ക്കുകൾ ധരിക്കുക കൈകൾ വൃത്തിയാക്കുക സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ ശീലങ്ങൾ നാം പിൻതുടരണമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ഏഴ് കളികളിൽ നാല് വിജയവുമായി പട്ടികയിൽ നാലാം സ്ഥാനത്താണ് കൊൽക്കത്ത